ഇരുനൂറ് പ്രവാസികളുമായി മനാമയിൽ നിന്നുള്ള വിമാനം ഇന്ന് രാത്രി കൊച്ചിയിലെത്തും

അതിഥി തൊഴിലാളികളുമായിട്ടി ് ഉത്തർ പ്രദേശിലേക്ക് പോകുന്ന ട്രെയിൻ ഇന്ന് പുറപ്പെടും

കേരളത്തിന് ആശ്ചാ്സത്തിന്റെ രണ്ടാം നാൾ ഇന്നലെയും ക്ട്രീവ്യിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല

ഇന്നലെ എത്തിച്ചേരേണ്ട ദോഹയിൽ നിന്നുള്ള വിമാന സർവ്വീസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് ടോം ജോസ് ഇൻട്രോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ എത്തുന്ന പ്രവാസികൾ പതിനാല് ദിവസം സർക്കാർ ഏർപ്പെടുത്തിയ നിരീക്ഷണത്തിൽ തുടരണമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ജില്ലയിൽ നിന്ന് തിരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനാണിത്

വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ബംഗ്ലാദേശിൽ നിന്നും ഏഴ് വിമാനങ്ങൾ കൂടി സർവ്വീസ് നടത്തുമെന്ന് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു

ഓഹരി രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ തുടക്കം

സ്വർണ്ണവില വർദ്ധിച്ചു

അയൽ രാജ്യത്തിന്റെ എയർ ലൈൻസിന്റെ വീഡിയോയാണ് ഇന്ത്യയുടേതെന്ന പേരിൽ പ്രചരിക്കുന്നതെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു

കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേരുടേയും കാസർഗോഡ് ജില്ലയിലെ രണ്ടു പേരുടേയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്

എന്നാൽ റെഡ് സോണിലുള്ള ജില്ലയിൽ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി

ഇന്നലെ പുതിയ ഹോട്ട് സ്പോട്ടുകൾ ഒന്നുമില്ല

മാസ്കുകൾ നിർമിച്ചു നൽകുന്നതിലൂടെ നല്ലെട്ടിരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കരുതിവെക്കുകയാണിയാൾ തൃശ്ശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മഹാരാഷ്ട്ര യിലാണ്